പ്രതിപക്ഷ ഭേദഗതികൾ വോട്ടിനിട്ടു തളളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിൽ പാസ്സായതിൽ സംതൃപ്തി അറിയിച്ചു കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപ്പിക്ക് മികച്ച വിജ യം

കൈത്തറി തുണികൾ ബ്രാന്റ് ചെയ്ത് വിപണനസാധ്യത വർധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ബാങ്കിനെതിരെ ആക്ഷേപ്ം ഉന്നയിക്കുന്നവർ ഒറ്റപ്പെ ടുമെന്ന് മന്ത്രി ഇ പി ജയ്രാജൻ കാഠ്മണ്ഡുവിൽ ദക്ഷിണേഷ്യൻ ഗെയിംസ് ഇന്ന് സമാപി ക്കും പൌരത്വഭേദഗൃതി ബിൽ ലോക്സഭ പാസ്സാക്കി പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് അഭ യാർത്ഥികളായെത്തുന്ന മുസ്ലിംങ്ങൾ ഒഴികെ മതക്കാർക്ക് പൌര്ത്വം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഭേദഗതി ബിൽ ഏഴ് മണിക്കൂറോളം നീണ്ട ചർച്ചക്ക് ശേഷം അർദ്ധരാത്രി യോടെ ലോക്സഭ ബിൽ വോട്ടിനിട്ട് പാസ്സാക്കി

പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ വോട്ടിനിട്ടു തള്ളി ബിൽ നാളെ രാജ്യസഭയിൽ അവതരിപ്പിക്കും മോദി ഗവൺമെന്റിന് കീഴിൽ രാജ്യത്തെ ഒരു മതവിഭാഗവും ഭയപ്പെടേണ്ടതില്ലെന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയ മത ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഭേദ ഗതി ബില്ലെന്നും ചർച്ചക്ക് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി രോഹിംഗ്യൻ മുസ്തിംങ്ങളെ അംഗീകരി ക്കുകയോ അഭയം നൽകുകയോ ചെയ്യില്ല ദേശീയ പൌരത്വ രജി സ്റ്റർ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി അറിയിച്ചു ഇന്ത്യയുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും അടിസ്ഥാന ആശയങ്ങളുടെയും മാനുഷിക മൂല്യ ങ്ങളുടെയും പൂർത്തീകരണവുമാണ് ഭേദഗതി ബില്ലെന്ന് അദ്ദേഹം ട്ടിറ്ററിൽ കുറിച്ചു ബില്ലിനെ പിന്തുണച്ച പാർട്ടികളെയും എംപിമാ രെയും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെ യുപിഎ കക്ഷികളും ഇടതു പാർട്ടികളും തൃണമൂൽ കോൺഗ്രസ്ട് എസ്പി ബിഎസ്പി എന്നിവയടക്കം പ്രതിപക്ഷ പാർട്ടികളും ബില്ലിനെ എതിർത്തു പൌരത്വഭേദഗതി ബിൽ നിയമമായാൽ കോടതിയെ സമീപിക്കു മെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാ ലിക്കുട്ടി ലോക്സഭയിൽ പറഞ്ഞു ബില്ലിൽ നിന്ന് മുസ്ലിംങ്ങളെ ഒഴിവാക്കിയത് വിവേചനവും ഭരണ്ഘടനാലംഘനവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു പൌരത്വനിയമ ഭേദ്ദ്ഗതി നീയമനിർമാണത്തിനെതിരെ മുസ്തിംലീഗ് ഇന്ന് സംസ്ഥാനവൃാപകമായി പഞ്ചായത്ത് മുൻസിപ്പൽ കോർപ്പറേ ഷൻ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രിട്ടറി കെപിഎ മജീദ് അറിയിച്ചു തുല്യനീതിയും പരി ഗണനയും ഉറപ്പ് നൽകുന്ന ഭരണഘടനക്ക് വിരുദ്ധമാണ് ഭേദഗതി യെന്ന് മജീദ് കോഴിക്കോട്ട് പ്രസ്താവനയിൽ ആരോപിച്ചു കർണാടക നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മികച്ച വിജയം

കോൺഗ്രസിന് രണ്ട് സീറ്റും കക്ഷിരഹിതന് ഒരു സീറ്റും ലഭിച്ചു ജെഡിഎസിന് ഒരു സീറ്റും ലഭിച്ചില്ല

നിയ മസഭയിലെ രണ്ട് സീറ്റുകൾ ഹൈക്കോടതിയിലെ കേസിനെ തുടർന്ന് ഒഴിച്ചിട്ടിരിക്കയാണ്

കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടി മറിച്ച കോൺഗ്രസിനും കൂട്ടുകക്ഷികൾക്കും ലഭിച്ച തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്ന് അവർ വിലയിരുത്തി

ജസ്റ്റിസ് എൻ വി രമണ നേതൃത്വം നിൽകുന്ന അഞ്ചംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ക്ടേസിലെ ബന്ധപ്പെട്ട കക്ഷി കളുടെ വാദങ്ങൾ ഒന്നിച്ച് പരിഗണിച്ച് വിധിപറയാനാണ് ബെഞ്ചിന്റെ തീരുമാനം ചില്ലറ വ്യാപാരികൾക്ക് സൂക്ഷിക്കാവുന്ന സവാളയുടെയും ഉള്ളി യുടെയും അളവ് കേന്ദ്ര ഗവ്ൺമെന്റ് രണ്ട് ടണ്ണായി കുറച്ചു പൂഴ്ത്തി വെയ്പ്പ് തടയാൻ ലക്ഷ്യമിട്ടാണ് നേരത്തെ നൽകിയിരുന്ന അഞ്ച് ടൺ എന്ന സംഭരണ പരിധി കുറച്ചത് സംസ്ഥാനങ്ങൾ ഉള്ളിയുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെയ്പും തടയാൻ അടിയന്തര നടപടി കൈക്കൊള്ളണ്മെന്ന് കേന്ദ്ര ഉപഭോക്തൃമന്ത്രാലയം നിർദേശം നൽകി കൈത്തറി തു്ണികൾ ബ്രാന്റ് ചെയ്ത് വിപണന സാധ്യത വർധി പ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദേശിച്ചു വിദേശ വിപണിയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനിൽ പരിശീലനം നേടി ജോലിയിൽ പ്രവേശിച്ചവരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മുഖ്യമന്ത്രി ഗോവ ചലച്ചിത്ര മേളയിൽ രജതമയൂരം നേടിയ സംവിധായകൻ ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് ഇന്ന് തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും

കേരളബാങ്കിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ ഒറ്റപ്പെടു മെന്ന് മന്ത്രി ഇ പി ജയരാജൻ അഭിപ്രായപ്പെട്ടു വൻകിട സ്ഥകാര്യ ധനകാരൃസ്ഥാപനങ്ങളുടെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേരള ബാങ്ക് യാഥാർത്ഥ്യമാകണമെന്ന് മന്ത്രി പറഞ്ഞു കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ സംഘടിപ്പിച്ച ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയരാജൻ വികസനചരിത്രത്തിലെ നാഴികകല്ലാണ് കേരള ബാങ്ക് രൂപീകര ണമെന്ന് മന്ത്രി ജെ മേഴ്സികുട്ടിഅമ്മ കൊല്ലത്ത് പറഞ്ഞു കൊല്ലം ജില്ലാതലആഘോഷങ്ങൾ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മലപ്പുറത്ത് കേരളബാങ്ക് രൂപീകരണത്തിന്റെ ജില്ലാതല ആഘോഷ ചടങ്ങ് ഉദ്ദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാലാരിവട്ടം പാലത്തിൽ ഭാരപരിശോധന നടത്തണമെന്ന ഉത്ത രവിനെതിരെ ഗവ്ൺമെന്റ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകു മെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു പാലത്തിന്റെ കേടുപാട് പ്രതീ ക്ഷിച്ചതിലും വലുതാണെന്ന വിലയിരുത്തലിലാണ് അപ്പീലിന് തയ്യാ റെടുക്കുന്ന്തെന്ന് മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു അട്ടപ്പാടി ആദിവാസി ഊരുകളിലേക്ക് ഭക്ഷ്യധാനൃങ്ങളെത്തി ക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻകട മന്ത്രി പി തിലോത്തമൻ ആന വായ് കോളനിയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും

പാലക്കാട് നഗരത്തിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയ സപ്ലൈകോ പീപ്പിൾസ് ബസാറും വൈകിട്ട് തിലോത്തമൻ ഉദ്ഘാടനം ചെയ്യും കാഠ്മണ്ഡുവിൽ ദക്ഷിണേഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും

തിരുവനന്തപുരത്ത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഡൽഹിക്കെ തിരെ കേരളം ശക്തമായ നിലയിൽ

നേരത്തെ ടോസ് നേടിയ കേരളം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ജൃഷഡ്പൂർഎഫ്സി ചെന്നൈയിൻ എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു ജംഷ ഡ്പൂരിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു ഇന്ന് കളിയില്ല നാളെ ഒഡീഷ ഹൈദ്ദരബാദിനെ നേരിടും അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട്മത്സരം ഇന്ന് ഏഴിമല നാവിക അക്കാദമിയിൽ ആരംഭിക്കും എട്ടിക്കുളം ബീച്ചിലാണ് മത്സരം

പട്ടിക വിഭാഗത്തിലെ അർഹരായ എല്ലാവർക്കും ഉപാധിരഹി തമായി വീടുകൾ നിർമ്മിച്ചു നൽകുമെന് മന്ത്രി എ സി മൊയ്തീൻ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു

കാഞ്ഞങ്ങാട്ട് വെസ്റ്റ് എളേരി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ പൂർത്തിയായ വീടുകളുടെ താക്കോൽ മന്ത്രി കൈമാറി ഇടുക്കി ജില്ലയിലെ അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം നൽകു മെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു ഇതുവരെ ഇരുപതിനായി രത്തോളം പേർക്ക് എൽഡിഎഫ് ഗവൺമെന്റ് പട്ടയം നൽകി കഴി ഞ്ഞു ശേഷിക്കുന്നവർക്കും ഭൂപ്രശ്നം പരിഹരിച്ച് പട്ടയം നൽകും നവീകരിച്ച ദേവികുളം താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പട്ടയം അനുവദി ക്കുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടു ത്തു ഇടുക്കി പത്തുചെയിൻ മേഖലയിൽ പട്ടയ്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം എം മണി അറിയിച്ചു നിലനിൽക്കുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരി ഹരിക്കുമെന്ന് ദേവികുളം താലൂക്ക് ഓഫീസിന്റെ പൈതൃകമന്ദിര ഉദ്ഘാടന ചടങ്ങിൽ എം എം മണി വൃക്തമാക്കി

താവനൂർ മണ്ഡല ത്തിലെ പദ്ധതി നടത്തിപ്പ് പുരോഗതി വിലയിരുത്താൻ പൊന്നാനി യിൽ ചേർന്ന യോഗൃത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗ മായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ഫോട്ടോ വീഡിയോ പ്രദർശനം അടയാളങ്ങൾ രാവിലെ മന്ത്രി വി എസ് സുനിൽകുമാറും പ്രതിപ ക്ഷനേതാവ് രമേശ് ചെന്നിത്തലയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും

വനിതാകമ്മീഷൻ സംസ്ഥാന സെമിനാർ രാവിലെ കോഴിക്കോട് കക്കോടിയിൽ ആരംഭിക്കും കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ ഉദ്ഘാടനം ചെയ്യും

ചക്കുളത്ത്കാവ് കാർത്തിക പൊങ്കാല ഇന്ന് കിലോമീറ്ററുക ളോളം ദൂരത്തിൽ പൊങ്കാല അടുപ്പുകൾ നിരത്താൻ ക്ഷേത്ര ട്രസ്റ്റ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്

ചക്കുളത്ത്കാവ് പൊങ്കാല പ്രമാണിച്ച് കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിൽ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാകലക്ടർ അവധി നൽകി പൊതു പരീക്ഷകൾക്ക് മാറ്റമില്ല ഐഐടി കാൺപൂരിലെ രസതന്ത്ര വിഭാഗം മുൻ മേധാവിയും പ്രകാശ രസതന്ത്ര ശാസ്ത്രജ്ഞനുമായിരുന്ന മണപ്പുറത്ത് പ്രൊഫ

വി ജോർജ്ജ് നിര്യാതനായി

ശാന്തിസ്വരൂപ് ഭട്നഗർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുർസ്കാരങ്ങൾ അദ്ദേഹ ത്തിന് ലഭിച്ചിട്ടുണ്ട്